പലയിടത്തും വാഹനങ്ങൾക്ക് നേരെ കല്ലേ റ്

യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസി ഡന്റ് ഡീൻ കുര്യാക്കോസടക്കം രണ്ട് പേർക്ക് ഹൈക്കോടതി നോട്ടീ സ്

അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന് മുഖ്യ പരിഗണന നൽകുമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ

നാല് സൈനികർക്ക് വീരമൃത്യു

രു ൽ ൾ ൽ ൾ ൽ ൾ ൽ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വധത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആഹാനം ചെയ്ത മിന്നൽ ഹർത്താൽ സംസ്ഥാനത്ത് ജനജീവിതത്തെ ബാധിച്ചു ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡു കളിലെല്ലാം ആദ്യ മണിക്കൂറുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു അർധരാ ത്രിക്ക് ശേഷം ഫേസ്ബുക്ക് വഴി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻകുര്യാക്കോസാണ് പകൽ ഹർത്താലിന് ആഹ്വാനം നൽകിയത് ഈ വിവരം അറിയാതെ രാവിലെ ജോലിക്കും മറ്റാവശ്യ ങ്ങൾക്കും എത്തിയ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ലക്ഷ്യസ്ഥാ നത്തെത്താനായില്ല

കോഴിക്കോട് ഇടുക്കി എറണാകുളം കൊല്ലം ജില്ലകളിൽ സ്വകാര്യ വാഹനങ്ങൾ പോലും ഹർത്താൽ അനു കൂലികൾ തടഞ്ഞതായി റിപ്പോർട്ടുണ്ട്

എസ്

സി ബസു കൾക്ക് നേരെ കല്ലേറുമുണ്ടായി കട കമ്പോളങ്ങളും ഹോട്ടലുകളും പലയിടത്തും പൂർണമായി അടഞ്ഞു കിടക്കുകയാണ് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഇന്നത്തെ പല ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയെ ഹർത്താ ലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പട്ടാമ്പിയിലും പാലക്കാട് കോഴിക്കോട് റൂട്ടിലും ഹർത്താൽ അനു കൂലികൾ വാഹനം തടയുന്നു കടകമ്പോളങ്ങൾ പൂർണമായും അട ഞ്ഞുകിടക്കുകയാണ് കോഴിക്കോട്ട് പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹന ങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു

ജില്ലയിൽ പലയി ടങ്ങളിലും റോഡ് ഉപരോധിച്ചു കോഴിക്കോട്ട് ബസുകളും വലിയ വാ ഹനങ്ങളും നിരത്തിലിറങ്ങുന്നില്ല നഗരത്തിൽ ചിലയിടങ്ങളിൽ കട കൾ തുറന്നിട്ടുണ്ട് നഗരത്തിൽ രാവിലെ തുറന്ന പെട്രോൾ പമ്പുകൾ ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു

ചിലയിടങ്ങളിൽ കെഎസ്ആർടിസി ബസുകളും സ്ഥകാര്യ ബസുകളും തടഞ്ഞതായി റിപ്പോർട്ടുണ്ട്

മിക്കയിടങ്ങളിലും കടകൾ തുറന്നുപ്രവർത്തിക്കുന്നുണ്ട്

സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹച രൃത്തിൽ ഇന്നത്തെ പരീക്ഷകൾ മാറ്റി ഇന്ന് തുടങ്ങാനിരുന്ന എസ്എ സ്എസ്എൽസി ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകളാണ് മാറ്റി യത് പുതുക്കിയ തിയതി പിന്നീട് അറിയിക്കും കേരള സർവകലാശാ ല നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി കണ്ണൂർ സർവ്വകലാശാ ല നടത്താനിരുന്ന എം ബി എ എം സിഎ ബി ടെക് പരീക്ഷകളും മാറ്റിയിട്ടുണ്ട് ഇരട്ടക്കൊലപാതകം നടന്ന കാസർകോട് പെരിയയിൽ കണ്ണൂർ റെയിഞ്ച് ഐജി ബൽറാം കുമാർ ഉപാധ്യായ കാസർകോട് ജില്ലാ പോലീസ് മേധാവി ഡോ എ ശ്രീനിവാസ് തുടങ്ങിയ ഉന്നത പോലീസ് സംഘം സന്ദർശനം നടത്തി കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ നേതാക്കൾ സംഭവ സ്ഥലത്തെത്തി

ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി പ്രദീപ് അടക്കം പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല യൂത്ത്കോൺഗ്രസ്ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താൽ കോടതി അലക്ഷ്യമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി ഹർത്താലിന് ആഹാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനും യു

എഫ് കാസർകോട് ജില്ലാ ചെയർമാനും നോട്ടീസ് അയക്കാൻ കോടതി നിർദേശിച്ചു പൊതുഗതാഗതം ഉടൻ പുനസ്ഥാപിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു

മാധ്യമങ്ങൾ മിന്നൽ ഹർത്താലുകളെ വാർത്തയായി നൽകരുതെന്നും ഇത് കോടതിയല ക്ഷ്യമാണെന്ന് സമൂഹത്തെ ബോധൃപ്പെടുത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദേശിച്ചു വിഷയം വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും മുൻകൂർ നോട്ടീസ് നൽകാതെ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കോടതി നടപടി

ഹർത്താൽ ആഹ്വാനം ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗവൺമെന്റ് ഹൈക്കോടതിക്ക് കൈമാറി അതേസമയം കോടതി നടപടികളുമായി സഹകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനപ്രസിഡന്റ് ഡീൻകുര്യാക്കോസ് കാസർകോട്ട് പറഞ്ഞു കോടതി നടപടിയെ നിയമപരമായി നേരിടും

കാസർകോട് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊല പ്പെടുത്തിയത് കൊടുവാൾ ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിച്ചാ ണെന്ന് ഇൻകസ്റ്റ് റിപ്പോർട്ട് ശരത്ലാലിന്റെ കഴുത്തിൽ ആഴത്തിൽ വെട്ടേറ്റതാണ് മരണകാരണം ഇതോടൊപ്പം ഇരുകാലുകളിലെയും അസ്ഥികൾ വെട്ടേറ്റ് തകർന്നിട്ടുണ്ട് കൃപേഷിന്റെ തലയിലേറ്റ മുറിവാണ് മരണകാരണം

അത് അംഗീകരിക്കാനാകില്ലെന്നും കോടിയേരി പറഞ്ഞു രാ ഷ്ട്രീയ ബോധമുള്ള ഒരു സിപിഐഎമ്മുകാരനും ഇത്തരമൊരു സംഭ വം നടത്താനാകില്ല

ഈ സംഭവത്തിൽ സിപിഐഎമ്മുകാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പാർട്ടിയുടെ രാഷ്ട്രീയ നയം ഉൾക്കൊ ള്ളാൻ കഴിയാത്തവാണ്

കാസർകോട് രണ്ടു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെ ടുത്തിയ സി

എം നടപടി തികഞ്ഞ കാടത്തമാണെന്ന് പ്രതിപ ക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിൽ നി ന്ന് സി

എം പിന്തിരിയില്ലന്നതിന്റെ തെളിവാണിത് നിരപരാധി കളുടെ ചോര് എത്ര ചിന്തിയാലും സി

എമ്മിന് മതിയാകില്ല ഷുഹൈബിന്റെ അരും കൊല കഴിഞ്ഞ് ഒരു വർഷം തികയുമ്പോഴാ ണ് കൃപേഷ് ശരത് എന്നീ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി

എം വകവരുത്തിയത് സി പി എം ഭീകര സംഘടനയെ പ്പോലെയാണ് പ്രവർത്തിക്കുന്നത് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തു ന്ന സി

എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധതക്കും ഫാസിസത്തിനും കേരളത്തിലെ ജനങ്ങൾ തക്കതായ മറുപടി നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു

അക്രമരാഷ്ട്രീയം അവസാന്നിപ്പിക്കുന്നിന് കോൺഗ്രസ് മുഖ്യ പരിഗ ണന നൽകുമെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ റഞ്ഞു കാസർകോട്ടെ ഇരട്ടക്കൊലപാതകം ആസൂത്രിതമാണ്

കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാ തകത്തിന്റെ ഉത്തരവാദിത്തം സിപിഐഎമ്മിന്റെ മേൽ കെട്ടിവെക്കു ന്നതിന് ബോധപൂർവ ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഏത് സംഭവം നടന്നാലും സിപിഐഎമ്മിനെ പ്രതിയാക്കാനാണ് ചിലരുടെ ശ്രമം

മാർക്സിസ്റ്റ് പാർട്ടി അക്രമ രാഷ്ട്രീ യം വെടിയുന്നില്ല ഭരണപരാജയം മറച്ചുവെക്കാൻ ഇത്തരം കൊലപാ തകങ്ങൾ കൊണ്ട് കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം

യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഹർത്താ ലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു

കൊല്ലപ്പെട്ട രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്ത ക രു ടെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളജിൽ പൂർത്തിയായി മൃത ദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു മെഡിക്കൽ കോളജിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കയാണ് കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം ഞെട്ടിക്കുന്നതാണെന്ന് കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ വിശ്രമമില്ലെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വൃക്തമാക്കി ജമ്മു കശ്മീരിലെ പുൽവാമയിൽ രണ്ട് ഭീകരരെ സൈന്യം ഏറ്റുമുട്ട ലിൽ വധിച്ചു കഴിഞ്ഞ ദിവസം സിആർപിഎഫ് ജവാൻമാരെ കൊല പ്പെടുത്തിയ ചാവേർ ആദിൽ അഹമ്മദ് ധറിന്റെ കൂട്ടാളികളായ ജയ്ഷെമുഹമ്മദ് ഭീകരരെയാണ് വധിച്ചതെന്നാണ് റിപ്പോർട്ട്

കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച ഏറ്റുമുട്ടലിൽ നാല് സൈനി കർ വീരമൃത്യുവരിച്ചു ഇതിലൊരു മേജറും ഉൾപ്പെടും

ഇന്നലെ പുലർച്ചെ അന്തരിച്ച റേഡിയോ പ്രക്ഷേപകനും നാടക രച യിതാവും എഴുത്തുകാരനുമായ സി

ഉച്ചകഴിഞ്ഞ് രാമവർമപുരം മൈത്രി ലൈനിലെ വീട്ടു വളപ്പിൽ സംസ്കരിക്കും കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ സി

റോഡിയോ പ്രക്ഷേപണത്തിൽ വൃക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായി രുന്നു സി പി രാജശേഖരനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനു ശോചന സന്ദേശത്തിൽ പറഞ്ഞു അഖില കേരള റ്റേഡിയോ ലിസ ണേഴ്സ് അസോസിയേഷനും നിര്യാണത്തിൽ അനുശോചനം അറി യിച്ചു